ത കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തരം ഉള്ളിയുടെയും കയറ്റുമതി ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം നിരോധിച്ചു ത ഇടുക്കിയിൽ രണ്ടാം വൈദ്യുതി നിലയം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി എം എം മണി വാർത്തകൾ വിശദമായി ഈ മാസവും അടുത്ത മാസവും സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു

സംസ്ഥാനത്ത് വ്യാപിക്കുന്ന കോവിഡ് വൈറസിന്റെ ജനിതക ഘടന സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കൻ ജില്ലകളിലെ രോഗികളിൽ സി

ആറിന് കീഴിലെ ജിനോമിക് ആന്റ് ഇന്റഗ്രേറ്റഡ് ബയോളജി പഠനം നടത്തിയിരുന്നു വ്യാപനശേഷി കൂടിയ വൈറസിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയതെന്ന് അവർ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു പ്രായം കൂടിയവർക്ക് രോഗം പകരാൻ സാധ്യത കൂടിയതിനാൽ ബ്രെയ്ക്ക് ദ ചെയ്ൻ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനവും കാര്യക്ഷമവുമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

രുമ പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്രാ പാർക്കിൽ സജ്ജമാക്കിയ ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനമാരംഭിച്ചു

നിലവിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായ മാങ്ങോട് കേരള മെഡിക്കൽ കോളെജ് നാളെ മുതൽ കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കും അട്ടപ്പാടിയിലെ ആദ്യ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരാഴ്ചക്കകം പ്രവർത്തനമാരംഭിക്കുമെന്ന് മന്ത്രി എ

ബാലൻ അറിയിച്ചു രുദ സംസ്ഥാനത്ത് മടങ്ങിയെത്തുന്ന അതിഥി തൊഴിലാളികൾക്കായി പൊതു ഭരണ വകുപ്പ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

ഈ വിവരങ്ങൾ തൊഴിൽ വകുപ്പിന്റെ അതിഥി പോർട്ടലിലും ലഭ്യമാക്കാൻ തൊഴിൽ വകുപ്പ് നടപടിയെടുക്കണം തൊഴിലാളി എത്തുന്ന സ്ഥലത്തെ തദ്ദേശ സ്ഥാപനം ക്വാറന്റൈൻ സൌകര്യങ്ങൾ പരിശോധിച്ച് പോർട്ടലിൽ രേഖപ്പെടുത്തും

ഇതിന് വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കുന്ന കേന്ദ്രം കരാറുകാർ ഒരുക്കണം കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവരെ അഞ്ച് ദിവസത്തിനകം കരാറുകാരുടെ ചെലവിൽ ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കണമെന്നും മാർഗ്ഗ നിർദ്ദേശത്തിൽ പറയുന്നു കരാറുകാർ ഇല്ലാതെ വരുന്ന തൊഴിലാളികൾ ക്വാറന്റൈനും പരിശോധനയും സ്വന്തം ചെലവിൽ നടത്തേണ്ടതാണ് ന്യൂസ് ഡസ്ക് ആകാശവാണി

രുമ ആശുപത്രികളിലെ ഓക്സിജൻ ലഭ്യത ഉറപ്പ് വരുത്താൻ സംസ്ഥാനങ്ങൾ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ മെഡിക്കൽ ഓക്സിജൻ കൈമാറ്റത്തിൽ നിയന്ത്രണങ്ങളില്ലെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി രുമ എല്ലാത്തരം ഉള്ളിയുടെയും കയറ്റുമതി കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു നിരോധനത്തിന് ഉടൻ പ്രാബല്യമുണ്ട് ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം തടയാനും ദൌർലഭ്യം ഇല്ലാതാക്കാനുമാണ് നടപടി രുര കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇന്ത്യ ചൈന സേനാ വിന്യാസം സംബന്ധിച്ച് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലോക്സഭയിൽ പ്രസ്താവന നടത്തും ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ ചർച്ച ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം അലവൻസ് പെൻഷൻ ഭേദഗതി ബിൽ അവശ്യ സാധാന ഭേദഗതി ബിൽ ബാങ്കിംഗ് റഗുലേഷൻ ഭേദഗതി ബിൽ എന്നിവ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരും രാജ്യസഭയിൽ പാപ്പർ നിയമസംഹിത രണ്ടാം ഭേദഗതി ബില്ലും ഇന്ന് അവതരിപ്പിച്ചേക്കും

ഭൂമിക്കടിയിലായിരിക്കും നിലയം നിർമ്മിക്കുന്നത് ഇതേപ്പറ്റി കേന്ദ്ര ഏജൻസി പഠനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു രാത്രിയിൽ പ്രവർത്തനം സാധ്യമാക്കുന്ന തരത്തിലായിരിക്കും രണ്ടാം നിലയത്തിന്റെ നിർമ്മാണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ ചെറുകിട വൈദ്യുത പദ്ധതികളിലെ ഉല്പാദനവും സൌരോർജ്ജ വൈദ്യുതോല്പാദനവും വർദ്ധിപ്പിക്കും ഇതുവഴി കേരളത്തെ വൈദ്യുതി സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി

സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമീണ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ ജൽജീവൻ മിഷൻ പദ്ധതി ലക്ഷ്യമിടുന്നതായും അദ്ദേഹം അറിയിച്ചു മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വളവന്നൂർ പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതി വീഡിയോ കോൺഫറൻസിംഗിലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേഴ ഭാരതപ്പുഴയും പൊന്നാനി പുഴയും സംഗമിക്കുന്ന പുറത്തൂർ പള്ളിക്കടവിൽ പുഴയോര സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവ്യത്തി മന്ത്രി ഡോ

ഒരു കിലോമീറ്ററോളം നീളത്തിൽ രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഭിത്തി നിർമ്മിക്കുന്നത് രുദ കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐയുടെ ഒന്നാം ഘട്ട വികസന പ്രവൃത്തികൾ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഓൺലൈനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ടി ഐകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് വികസന പദ്ധതി നടപ്പാക്കുന്നത് മേഖലാ ഡയറക്ടറേറ്റിന് തോട്ടടയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും രുമ കൊല്ലം ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് നവീകരിച്ച ആയൂർ തോട്ടത്തറ ഹാച്ചറി കോംപ്സക്സ് മന്ത്രി കെ

മുട്ടക്കോഴികളുടെ ദൌർലഭ്യം പരിഹരിച്ച് സ്വയം പര്യാപ്തത നേടാനാണ് ഹാച്ചറി നവീകരിച്ചത് രുമ ഇടുക്കി കാഞ്ചിയാർ ലബ്ബക്കടയിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉച്ചയ്ക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും

ചടങ്ങിൽ മന്ത്രി എം എം മണി അധ്യക്ഷനായിരിക്കും രുഭ സംസ്ഥാന ഗവൺമെന്റ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി

കിഡ്സൺ കോർണറിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ജയരാജന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച രാവിലെ മന്ത്രിയുടെ കണ്ണൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തും ഇന്നലെ മട്ടന്നൂരിലെ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും ബി ജെ

യും യൂത്ത് ലീഗും മാർച്ച് നടത്തിയിരുന്നു രേര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നം സുരേഷ് റമീസ് എന്നിവരെ ഇന്ന് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കിയേക്കും രണ്ടുപേരും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സാഹചര്യത്തിലാണ് വിദഗ്ദ്ധ പരിശോധന നടത്തണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് അതിനിടെ സ്വപ്ന സുരേഷ് അടക്കം അഞ്ച് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന എൻ

എയുടെ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചേക്കും

ഇതോട് ബന്ധപ്പെട്ട് ചെറുപുഴ സ്വദേശികളായ ഷിഹാബ് നീരജ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു മിനിലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ചാണ് പുകയില ഉല്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് രെ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് കൊച്ചിയിൽ എത്തി നാവിക കേന്ദ്രത്തിലെ പരിശീല പരിപാടികൾ അനുബന്ധ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അദ്ദേഹം പരിശോധിക്കും കപ്പൽ ശാലയിൽനാവികസേനയ്ക്കുവേണ്ടി നിർമ്മിക്കുന്ന വിമാന വാഹിനി കപ്പലിന്റെ നിർമ്മാണ പുരോഗതിയും നാവികസേനാ മേധാവി വിലയിരുത്തും രുമ എറണാകുളം ജില്ലയിലെ വളന്തകാട് ദ്വീപിൽ ആരംഭിക്കുന്ന ടൂറിസം പദ്ധതിക്ക് തുടക്കമായി

രുര പോണ്ടിച്ചേരി സർവ്വകലാശാല പ്രവേശന പരീക്ഷയും കേന്ദ്ര സർവ്വകലാശാല പൊതു പ്രവേശന പരീക്ഷയും ഒരേ ദിവസം നടത്തുന്നത് വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്ന് എം